വാർത്തകൾ വിശദമായി റഷ്യ ഇന്ത്യ ചൈന വിദേശകാര്യ മന്ത്രിമാരുടെ ത്രികക്ഷി യോഗം ഇന്ന് നടക്കും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരിക്കും മൂന്ന് വിദേശകാര്യ മന്ത്രിമാരും ചർച്ചയിൽ പങ്കെടുക്കുന്നത് ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഏറ്റുമുട്ടിയ സാഹചര്യത്തിൽ നടക്കുന്ന യോഗം എന്നാൽ ഈ വിഷയം ചർച്ച ചെയ്യുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല

നാലുപേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു

ഇന്നലെ നാല് പുതിയ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ വാർഡിനെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കി

ദേദ പുതുച്ചേരി സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ മാഹിയിലും നടപ്പാക്കും മദ്യ ഷാപ്പുകൾ ഉൾപ്പെടെ എല്ലാ കടകളും രാവിലെ ആറു മുതൽ ഉച്ചയ്ക്ക് രണ്ടുവരെ മാത്രമേ പ്രവർത്തിക്കാവൂ

ഈ യോഗത്തിൽ പങ്കെടുത്ത ആരോഗ്യവകുപ്പ് ജീവനക്കാരിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്നാണ് നടപടി

രുര കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രത്യേക ചാർട്ടേർഡ് വിമാനത്തിലെത്തുന്ന പ്രവാസികൾക്ക് ചെക്ക് ഇൻ നടപടികൾ പൂർത്തീകരിക്കുന്നതിലെ കാലതാമസം മൂലം ഏറെനേരം കാത്തു നിൽക്കേണ്ടിവരുന്നുവെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് ജില്ലാ കളക്ടർ ടിവി സുഭാഷ് അറിയിച്ചു

രുമ പ്രവാസി വിഷയത്തിൽ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ നാളെ കോഴിക്കോട്ട് ഉപവാസ സമരം നടത്തും മുസ്ലിംലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നടത്തും രുമ വയനാട് പുത്തുമലയിലെ പുനരധിവാസ പദ്ധതി ഹർഷം രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി നിർമ്മിക്കുന്ന പുതിയ വീടുകൾക്ക് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്യും പ്രളയ ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന പൂത്തകൊല്ലി എസ്റ്റേറ്റിലാണ് ചടങ്ങ് വയനാട് എം പി രാഹുൽ ഗാന്ധി മുഖ്യ പ്രഭാഷണം നടത്തും

തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസ്ഥാനതല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കോവിഡ് പശ്ചാത്തലത്തിൽ ഞാറ്റുവേല ചന്തകളും കർഷക സഭകളും മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാറ്റുവേല ചന്തയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ടി

തൃശൂരിൽ മന്ത്രി സി രവീന്ദ്രനാഥും മണ്ണുത്തി കാർഷിക വിജ്ഞാനകേന്ദ്രത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജനും ഞാറ്റുവേല ചന്തകൾ ഉദ്ഘാടനം ചെയ്തു

ഇന്നലെ അന്തരിച്ച പ്രശസ്ത അഭിനേതാവും ഗായകനും ആയിരുന്ന പാപ്പുക്കുട്ടി ഭാഗവതരുടെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ രാവിലെ കൊച്ചി പെരുമ്പടപ്പ് സാന്താക്രൂസ് പള്ളിയിൽ നടത്തും

കൂടുതൽ വിവരങ്ങളുമായി അനുഷ ആത്മപ്രകാശ് രാമ കേരള സൈഗാൾ എന്നറിയപ്പെട്ടിരുന്ന സംഗീതജ്ഞനും നടനും കാഥികനും സംഗീതാധ്യാപകനുമായിരുന്നു എം

പാപ്പുക്കുട്ടി ഭാഗവതരുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി എ

അദ്ദേഹത്തിന്റെ സംഭാവനകൾ കലാകേരളം എക്കാലത്തും സ്മരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒരു നൂറ്റാണ്ടിലെ നാടക സംഗീത സിനിമാ മേഖലകളിലെ വികാസ പരിണാമങ്ങൾക്ക് അദ്ദേഹം സാക്ഷിയായിരുന്നുവെന്ന് മന്ത്രി എ

ന്യൂസ് ഡസ്ക് ആകാശവാണി

ജൂലൈ ആദ്യവാരത്തോടെയായിരിക്കും ഭക്ഷ്യകിറ്റ് വിതരണത്തിന്റെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ തുടക്കം

തുടർന്ന് പയ്യാമ്പലത്ത് സംസ്ക്കരിക്കും ഞായറാഴ്ച വൈകിട്ട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സുരേന്ദ്രന്റെ അന്ത്യം രുമ ചൈനീസ് വിഷയത്തിൽ സി

എമ്മിന്റെയും കോൺഗ്രസ്സിന്റെയും നിലപാടിനെതിരെ ബി ജെ പി കോഴിക്കോട്ട് ഇന്ന് പ്രതിഷേധം സംഘടിപ്പിക്കും

ജെ പി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും

ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാന ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി രുമ മത്സ്യ വിപണിയിൽ ന്യായവില ഉറപ്പാക്കുമെന്നും അധികം വരുന്ന മത്സ്യങ്ങൾ മത്സ്യഫെഡ് വാങ്ങി സംഭരിക്കുമെന്നും മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു അനിയന്ത്രിത വിലക്കയറ്റം അനുവദിക്കില്ല തങ്കശ്ശേരി തുറമുഖത്ത് മത്സ്യങ്ങൾ കേടുകൂടാതെ സംഭരിക്കാൻ സ്ഥാപിച്ച റീഫർ കണ്ടെയ്നർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എസ് സി റാങ്ക് ലിസ്റ്റ് നിയമനങ്ങളിൽ എൽ ഡി എഫ് ഗവൺമെന്റ് യുവജന വഞ്ചനയാണ് കാണിക്കുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ കുറ്റപ്പെടുത്തി ഇതിൽ പ്രതിഷേധിച്ചും റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നും സമയബന്ധിതമായി നിയമനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നാളെ പട്ടം പി എസ് സി ആസ്ഥാനത്തിന് മുന്നിൽ നിരാഹാരം അനുഷ്ഠിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു

യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ അന്വേഷണം രണ്ടാഴ്ചക്കകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു